ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക് ബംഗാൾ ഉൾക്കടെൽ മേഖലയിൽ് സുസ്ഥിര സമാധാനം ഉച്ചകോടി ഉറപ്പാക്കാൻ വഴിയൊരുക്കുമെന്ന് നേന്ദ്രമോദി

കേരളത്തിലെ പ്രളയദുരന്തവും പുനരധിവാസവും ചർച്ച ചെയ്യാൻ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് ലോകബാങ്ക് പ്രതിനിധി സംഘം മുഖൃമന്ത്രിയുമായി ചർച്ച നടത്തി

ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് സതാംപ്ടണിൽ ഇന്ന് മുതൽ

നാലാമത് ബിംസ്റ്റെക് ഉച്ചകോടി ബംഗാൾ ഉൾക്കടൽ മേഖലയുടെ സമാധാനത്തിനും സമൃദ്ധിക്കും ഇടവരുത്തുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഉച്ചകോടിക്കിടെ സംഘടനയിലെ എല്ലാ നേതാക്കളുമായും ആശയവിനിമയം നടത്തും മേഖലാതല സഹകരണം വ്യപാരപുരോഗതി ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ സമാധാനവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇതെന്ന് പ്രധാനമന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം നിലനിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായതിനാലാണ് ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നത് പൊത്രൂപ്പായ അഭിലാഷങ്ങളും വെല്ലുവിളികളും മനസിലാക്കി കൂട്ടായി പ്രവർത്തിക്കാൻ ഉച്ചകോടിയിലെ ചർച്ചയിലൂടെ കൃഴിയുമെന്ന് ശ്രീ മോദി പറഞ്ഞു സമാധാനപരവും സമൃദ്ധി നിൽനിൽക്കുന്നതുമായ ബംഗാൾ ഉൾക്കടൽ മേഖല എന്നുതാണ് ഉച്ചകോടിയിലെ ചർച്ചാ വിഷയം

നല്ല മഴകിട്ടിയതും വൃവസായ പുരോഗതിയും മൂലമാണിത് ചില്ലറ വ്യാപാര മേഖലയിലെ പണപ്പെരുപ്പം നാല് ശതമാനമാക്കുകയെന്ന ഇടക്കാല ലക്ഷ്യം കൈവരിക്കുക അടിസ്ഥാനപ്പെടുത്തിയാണ് റിസർവ് ബാങ്കിന്റെ ധനനയം മുന്നോട്ട് പോകുന്നത്

വൃവസായങ്ങൾ മുതലുളള എല്ലാ പ്രമുഖ മേഖലകളും നല്ല പ്രകടനമാണ് കാഴ്ചവയ്ക്കുന്നതെന്നും റിസർവ് ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു

രാജ്യത്ത് ഒരിടത്തും ഇപ്പോൾ കറൻസിക്ക് ക്ഷാമമില്ലെന്നും ഗവൺമെന്റ് അറിയിച്ചു കള്ളപ്പണം തടയുക ഭീകരർക്കുള്ള ധനസഹായം ചെറുക്കുക ഡിജിറ്റൽ ഇടപാട് പ്രോൽസാഹിപ്പിക്കുക കള്ള നോട്ടിന്റെ പ്രചാരം തടയുക എന്നീ സുപ്രധാന ലക്ഷ്യങ്ങൾ ഏറെക്കുറെ നേടിക്കഴിഞ്ഞതായി കേന്ദ്ര സാമ്പത്തിക കാര്യ സെക്രട്ടറി എസ്

ഐഎസ്ആർഒ ചെയർമാൻ കെ ശിവൻ അറിയിച്ചതാണിത്

മനുഷ്യനുൾപ്പെട്ട ഇന്ത്യയുടെ ആദ്യ ബാഹ്യബഹിരാകാശ ദൌത്യമായ ഗഗൻയാനിൽ ആയിരിക്കും ഐഎസ്ആർഒ ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക

പുതിയ പദ്ധതി നിർവഹണത്തിനായുള്ള രൂപരേഖയും നിർവഹണ സംഘത്തിന്റെ രൂപീകരണവും ഉടൻ തയാറാവും

ഇതിനായി ഇന്ത്യൻ വ്യോമസേനയിലെ മികച്ച ആറ് പേരെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകും ഇവരെ പരിശീലിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ യാത്രികനായ രാകേഷ് ശർമ വിദേശ ബഹിരാകാശ ഏജൻസി എന്നിവരുടെ സഹായം തേടും

ഈ സംസ്ഥാനങ്ങളിൽ ആധാർ കാർഡ് സ്വന്തമാക്കിയവരുടെ എണ്ണം കുറവാണെന്നു കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം

തിരുവനന്തപുരത്ത് ലോക ബാങ്ക് പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാരൃം വ്യക്തമാക്കിയത്

റോഡുകളും പാലങ്ങളും നശിച്ചതിനൊപ്പം ചെറുകിട കച്ചവടക്കാരും വൃക്തികളും പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇതിനും പരിഹാരം കാണും അതിന് നിലവിലെ ബാങ്ക് പദ്ധതികൾ മാത്രം പോര

പരിസ്ഥിതി ദുർബല പ്രദേശത്തുനിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം

ലോകബാങ്ക് പ്രതിനിധി സംഘത്തെ അയയ്ക്കാൻ തയ്യാറായ കേന്ദ്ര സ്ടാമ്പത്തിക കാര്യ മന്ത്രാലയത്തിന്റെ നടപടിയിൽ മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു

കേരളത്തെ പുനർ നിർമ്മിക്കാനുള്ള യാത്രയിൽ തങ്ങൾ ഒപ്പമുണ്ടാവുമെന്ന് ലോകബാങ്ക് പ്രതിനിധി സംഘം അറിയിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്കുള്ള അടുത്ത തുക ഉടൻ അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു

പുനരധിവാസ പ്രവർത്തനത്തിന് ബാങ്ക് ഇൻഷുറൻസ് മേഖലകളുടെ പങ്ക് യോഗം ചർച്ച ചെയ്തു കേരളത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നിരന്തരം നിരീക്ഷിച്ചുവരികയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായാഭ്യർത്ഥന കേന്ദ്രത്തിന്റെ പരിഗണനയിലാണ്

സഭയിലെ ചർച്ചകൾ കൂടി കണക്കിലെടുത്തായിരിക്കും പുനർ നിർമ്മാണ പദ്ധതിക്ക് അന്തിമരൂപം നൽകുകയെന്ന് മുഖ്യമന്ത്രി വൃക്തമാക്കിയിട്ടുണ്ട്

ട്രിപ്പിൾ ജമ്പിനു പുറമെ ഹെപ്റ്റാത്തണിലും ഇന്ത്യ സ്വർണ്ണം നേടി കൂടുതൽ വിവരങ്ങളുമായി സീനാ ആന്റണി

ചൈനയെ എതിരില്ലാത്ത ദ ഒരു ഗോളിന് കീഴ്പ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ എത്തിയത്

പതിനൊന്നാം ദിനത്തിൽ ടേബിൾ ടെന്നീസിൽ നിന്നായിരുന്നു ആദ്യമെഡൽ മിക്സഡ് ഡബിൾസിൽ ശരത്കമൽ മണികാബാത്ര സഖ്യമാണ് വെങ്കലം നേടിയത്

ന്യൂസ് ഡസ്ക് ആകാശവാണി